സാമ്പത്തിക തട്ടിപ്പു കേസിൽ രാജ്യൂംവിട്ട് വജ്രവ്യാപാരി മെഹുൽ ചോക്സിയെ ആന്റിഗ്വയിൽ പ്രോദ്യം ചെയ്യണമെന്ന അപേക്ഷ എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രിറ്റ് നിരാകരിച്ചു

ഇന്നലെ ന്യൂഡിൽഹിയിൽ നിതി ആയോഗ് സംഘടിപ്പിച്ച യോഗത്തിൽ വിപ്പിക്ക് മേഖലകളിൽ നിന്നുള്ള നാല്പതിലധികം സാമ്പത്തിക വിദ്രഗ്ദ്ധരുമായി ആശയ വിനിമയം നട ത്തുകയായിരുന്നു പ്രധാനമന്ത്രി കൂടുതൽ വിവരങ്ങളുമായി നൂരേന്ദ്രമോഹൻ

നിർദേശങ്ങളും നിരീക്ഷണങ്ങളും അവതരിപ്പിച്ച വിദഗ്ധർക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചതായും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നു സമ്പദ് വൃവസ്ഥ തൊഴിൽ കൃഷി ജലവിഭവം കയറ്റുമതി ആരോഗ്യം എന്നീ മേഖലകളെ സംബന്ധിച്ച് അഞ്ചു വ്യത്യസ്ത വിഭാഗ ങ്ങളിലായാണ് വിദഗ്ധസംഘങ്ങൾ തങ്ങളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചത് കേന്ദ്രമന്ത്രിമാരായ പിയൂഷ്ഗോയൽ റാവു ഇന്ദ്രജിത് സിംഗ് നിതി ആയോഗ് വൈസ് ചെയർമാൻ രാജീവ് കുമാർ സി ഇ ഒ അമിതാഭ് കാന്ത് എന്നിവരും ഉന്നത ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ക്ടാകിസ്ഥാനിൽ നിന്ന് ഉണ്ടാകുന്ന നുഴഞ്ഞു കയറ്റവും വെടിനിർത്തൽ ലംഘനങ്ങളും മറ്റു പ്രകോപനങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചരൃത്തിലാണ് ബിപിൻ റാവത്തിന്റെ സന്ദർശനം

കോളെജ് വിദ്യാർത്ഥിനി സമർപ്പിച്ച പരാതിയിൽ കഴിഞ്ഞ മാസം ഒന്നിനാണ് കേസിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത്

ജെ പി സംഘം സന്ദർശനം നടത്തി മുൻകേന്ദ്രമന്ത്രി എസ്

അലുവാലിയ ബി ജെ പി എം പിമാരായ സത്യപാൽ സിംഗ് ബി

റാം എന്നിവരാണ് പാർട്ടി നിർദ്ദേശമനുസരിച്ച് ഭട്ട്പാരയിൽ എത്തിയത് സ്ഥിതിഗതികൾ വിലയിരുത്തിയ സംഘം ഇതു സംബന്ധിച്ച റിപ്പോർട്ട് ബി ജെ പി ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത് ഷായ്ക്ക് കൈമാറും

ആണവായുധങ്ങൾ ശേഖരിക്കുന്നതിൽ നിന്നും ഇറാനെ തടയുന്നതി നാണ് നടപടി എന്ന് ട്രംപ് വൃക്തമാക്കി ഇറാന്റെ ആണവ പരിപാടി കൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള പരിധി ലംഘിക്കുമെന്ന ടെഹറാന്റെ പ്രഖ്യാപനത്തെത്തുടർന്നാണ് ഉപരോധം ശക്തമാക്കാൻ തീരുമാനിച്ച ത് ഇറാൻ നേതൃത്വം അവരുടെ ആണവ നയത്തിൽ നിന്നും പിന്നോട്ട് പോയില്ലെങ്കിൽ സാമ്പത്തിക ഉപരോധം കൂടുതൽ വ്യാപിപ്പിക്കു മെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി

അമേരിക്കയുടെ ഏക പക്ഷീയമായ ഈ നടപട്ടിയെ തുടർന്ന് ഇറാൻ ആണവ കരാറിൽ നിന്ന് പിൻമാറുകയായിരുന്നു ഇറാന്റെ നടപടിക്കെതിരെ സൈനിക നീക്കം ഉടൻ ഇല്ലെന്നും ഉപരോധങ്ങൾ ശക്തമാക്കുന്ന നടപടി തുടരുമെന്നും ട്രംപ് വ്യക്തമാക്കി

കൂടുതൽ വിവരങ്ങളുമായി നരേന്ദ്രമോഹൻ

എയർ ആംബുലൻസ് ഡോക്ടർമാരുടെ സാന്നിദ്ധൃം തുടങ്ങിയ എല്ലാ സൌക രൃങ്ങളും ഏർപ്പെടുത്താമെന്ന് എൻഫ്യോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃക്തമാക്കിയിട്ടുണ്ട്

താൻ ചികി ത്സാർത്ഥമാണ് രാജൃം വിട്ടതെന്നും വിചാരണ നേരിടുന്നതിൽ നിന്നും രക്ഷപ്പെടാനല്ലെന്നും മെഹുൽ ചോക്സി അറിയിച്ചിരുന്നു എന്നാൽ ഇന്ത്യയിലെ മെച്ചപ്പെട്ട ചികിത്സാ സൌകര്യങ്ങൾ ചോക്സിക്ക് ഏർപ്പെ ടുത്താമെന്നും അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉടൻ ഇന്തൃയിലേക്ക് തന്നെ മടങ്ങിവരണമെന്നുമാണ് ഡയറക്ടറേറ്റ് മറുപടി നൽകിയത് കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് പി

ആറ് കളികളിൽ നിന്ന് മൂന്ന് പോയിന്റ് മാത്രമുള്ള ദക്ഷിണാഫ്രിക്ക സെമിഫൈനലിൽ നിന്ന് പുറ ത്താണ് അതേസമയം ശേഷിക്കുന്ന നാല് മത്സരങ്ങൾ ജയിച്ചാൽ പാക്കിസ്ഥാന് സെമി ഫൈനലിൽ പ്രവേശിക്കാം

ഫൈനലിൽ എത്തിയതോടെ ഇന്ത്യയും ജപ്പാനും ഈ വർഷാവസാനം നടക്കുന്ന അന്താരാഷ്ട്ര വനിതാ ഹോക്കി ഒളിമ്പിക്സ് ഹോക്കി മത്സരത്തിന് യോഗൃത നേടിയിട്ടുണ്ട്

മുംബൈയിൽ മസ്ഗാവോൺ ഡോക്യാർഡ്ഡിൽ നിർമ്മാണത്തിലിരിക്കുന്ന നാവിക യുദ്ധക്കപ്പലിൽ ചെറിയ തീപിടുത്ത മുണ്ടായതിന് പിന്നാലെയാണ് ഈ തീരുമാനം തീപിടുത്തിന്റെ കാരണവും നാശനഷ്ടത്തിന്റെ വ്യാപ്തിയും കണ്ടെത്തണമെന്ന് കമ്പനി വക്താവ് ആശിഷ് സിംഗ് ഇന്നലെ വാർത്താ ഏജൻസിയോട് പറഞ്ഞു

കോഴിക്കോട് കാസർകോട് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങ ളിൽ ശക്തമായ മഴയ്ക്കു സാധൃതയുള്ളതിനാൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്

പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് ഇവിടെ പരീക്ഷിക്കപ്പെടുകയെന്ന് വിദേശകാര്യവക്താവ് രവീഷ്കുമാർ പറഞ്ഞു പാകിസ്ഥാന്റെ പിന്തുണയോടെ നൂടക്കുന്ന ഭീകരവാദത്തിനും അതിനുള്ള സാമ്പത്തിക സഹായത്തിന്നും തട്യിടാൻ സുതാര്യതയും സ്ഥിരതയുള്ളതുമായ നടപടികളെടുത്താലേ ലോക രാജ്യങ്ങൾക്കുള്ള ആശങ്കയ്ക്ക് പരിഹാരമാകൂ ഫിനാൻഷൃൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ നിർദേശങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ നടിപ്പടി നേരിടേണ്ടി വരുമെന്നും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും പാക്കീസ്ഥാന് മുന്നറിയിപ്പും നല്കിയിട്ടുണ്ട്

ഹർഷവർദ്ധനും ഊൌർജ്ജമന്ത്രി രാജ്കുമാർസിംഗും ഉപരാഷ്ട്രപതി എം

രാജൃത്ത് ചികിത്സാചെലവ് കുറയ്ക്കുന്നതിന് നടപടിയെടുത്തു വരികയാണെന്ന് ആരോഗൃമന്ത്രി അറിയിച്ചു തെലുങ്കാനയ്ക്കും ആന്ധ്രാപ്രദേശിനും അനുവദിച്ച എയിംസിന്റെ നിർമ്മാണം ഉടൻ തുടങ്ങണമെന്ന് ഉപരാഷ്ട്രപതി ആവശ്യപ്പെട്ടു

ഇനിയും വൈദ്യുതി എത്താത്ത ഗ്രാമീണ വീടുകളുടെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്നും അദ്ദേഹം ഊർജ്ജമന്ത്രിയെ ഓർമ്മിപ്പിച്ചു